അവശ്യസാധനങ്ങൾ ലഭ്യമാക്കുന്ന ചെറുകിട കച്ചുവടക്കാർക്കും വ്യാപാരികൾക്കും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം

ചൂിക്കാട്ടി കേരളത്തിന് കേന്ദ്രത്തിന്റെ കത്ത്

അതിനാൽ തന്നെ ഒരുമയോടും സാഹോദരൃത്തോടും കൂടിയാണ് ഇതിനെ നാം നേരിടേണ്ടതെന്നും പ്രധാനമന്ത്രിച്ചു ് ആഹ്വാനം ചെയ്തു മുൻകാലങ്ങളിൽ നിന്നും വൃത്യ്സ്തമായി പൊതുവായ പ്രതിസന്ധിയെയാണ് ലോകം ഇ്ന്ന് നേരിടുന്നതെന്ന് ലിങ്ക്ഡ് ഇൻ എന്ന സാമുഹിക മാധ്യിമത്തിലെ പോസ്റ്റിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇന്ത്യയിൽ നിന്നുള്ള പ്രതീക്ഷ നൽകുന്നതും നവീനവുമായ ആശയങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാകും ഈ ആശയങ്ങൾ ഇന്ത്യയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ മുതൽക്കൂട്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സ്വന്തം ജീവനും സുരക്ഷയും മറന്ന് ഇവർ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തത് പ്രശംസനീയമാണെന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ഇതുപോലെ സഹകരിച്ചതിലൂടെയാണ് ലോക്ക്ഡൌൺ വിജയമാക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

ആഗോള മരുന്നു ഉത്പാദന വ്യാപാര രംഗത്ത് മുൻപന്തിയിലുള്ള രാജ്യമെന്ന നിലയിൽ കോവിഡ് പ്രതിരോധത്തിനായി ലോക രാജ്യങ്ങൾക്ക് ആവശ്യമായ ഹൈഡ്രോക്സി ക്ലോറോകിൻ മരുന്ന് ലഭ്യമാക്കാൻ ഇന്ത്യ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും ഇത് തമിഴ്നാടിന് നേരിയ ആശ്വാസം പകരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

ലോക്ഡൌണിൽ നിയന്ത്രിക്കുള്ളവുകളാണ് ഈ പ്രദേശങ്ങൾക്ക് നൽകിയിരിക്കുന്നത്

കോഴിവളർത്തൽ കാലിവളർത്തൽ മേഖല തുടങ്ങിയവയ്ക്കും പ്രവർത്തനാനുമതി ഉണ്ട് ഗ്രാമീണ മേഖലയിലെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഐ ടി ഹാർഡ്വെയർ നിർമ്മാണം കൽക്കരി ഖനികൾ മിനറൽ ഉൽപ്പാദന മേഖല പാക്കേജിംഗ് വസ്തുക്കളുടെ ഉൽപാദനം എന്നിവയ്ക്കും പ്രവർത്തിക്കാം ഇലക്ട്രീഷ്യൻമാർ ഐ

എന്നാൽ അതാത് സംസ്ഥാനങ്ങളിലെ ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കും ഇവയ്ക്ക് അനുമതി നൽകുക

പച്ച ഓറഞ്ച് ബി സോണുകളിലെ ജില്ലകളിലാണ് ഇളവുകൾ നിലവിൽ വന്നത് എന്നാൽ ഈ മേഖലകളിൽ ജില്ലാ ്ക് അതിർത്തി കടന്നുള്ള യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്

കേരളം ചില മേഖലകൾക്ക് ഇളവുകൾ നൽകിയത് കത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് വർക്ക്ഷോപ്പുകൾ ബാർബർഷോപ്പുകൾ റസ്റ്ററന്റുകൾ ബുക്ക് സ്റ്റാൾ എന്നിവ തുറക്കാൻ അനുവദിച്ചതും നഗരപരിധിയ്ക്കുള്ളിൽ നിയന്ത്രണങ്ങളോടെ ഹ്രസ്വദൂര ബസ് ഗതാഗതം അനുവദിച്ചതും കേന്ദ്ര നിർദ്ദേശം മറികടന്നാണെന്ന് കത്തിൽ പറയുന്നു

പതിമൂന്ന് കേന്ദ്രങ്ങളാണ് അതി തീവ്ര മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും സർക്കാർ നിർദേശപ്രകാരം ജില്ലയിലെ മ്മുഴൂപ്പിൻ പ്രദേശങ്ങളിലും നിലവിലുള്ള നിയന്ത്രണങ്ങൾ പൂർണ്മായും തുടരും

ജനറൽ ആശുപത്രില്പ് ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇയാൾ രാവിലെ ആശുപത്രിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കാർ മാർഗ്ഗം യാത്രയായി

സ്പെയിനിൽ മരണനിരക്ക് കുറയുകയാണ്